രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും ഇറാൻ പ്രതിരോധ മന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് ടെഹ്റാനിൽ

കേന്ദ്ര സർക്കാർ നിയമനങ്ങളിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളോ നിരോധനമോ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ധനമന്താലയം

പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യാൻ നാളെ ഗവർണർമാരുടെ സമ്മേളനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

കേരളത്തിൽ രോഗവ്യാപനം കൂടുതലുള്ള തിരുവനന്തപുരം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം

പ്രതിരോധ രംഗത്തെ സഹകരണത്തെക്കുറിച്ച് ഇരു രാഷ്ട്രനേതാക്കളും ചർച്ച നടത്തും മോസ്ക്കോയിൽ ഷാങ്ഹായ് സഹകരണ അംഗ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് ശ്രീ

സർക്കാരിന്റെ ചെലവ് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക നടപടികളെപ്പറ്റിയുള്ള സർക്കുലർ നിയമന നടപടികളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും മന്ത്രാലയം വൃക്തമാക്കി കേന്ദ്രസർക്കാർ നിയമന ഒഴിവുകൾക്കുമേൽ നിരോധനമോ നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ യു

എസ് സി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നിവ വഴിയുള്ള സാധാരണ നിയമന ന്ടപടികൾ മാറ്റമില്ലാതെ തുടരുമെന്നും മന്ത്രാലയം ഉറപ്പ് നൽകി

രാജ്യത്തെ നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ മൊത്തത്തിൽ പുനഃക്രമീകരിക്കുകയും പുനർവിചിന്തനത്തിന് വിധേയമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസനയത്തിന് രൂപം നൽകിയത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംസ്ഥാനത്തെ അധ്യാപകരുമായി മുഖ്യമന്ത്രി ശിവരാജ് സിങ് ചൌഹാൻ നടത്തിയ ആശയവിനിമയത്തിൽ ആണ് ഇക്കാര്യം അറിയിച്ചത് സ്വയംപര്യാപ്ത മധ്യപ്രദേശ് പദ്ധതിക്കായി തയ്യാറാക്കിയ രൂപരേഖയിൽ പുതിയ വിദ്യാഭ്യാസ്ത്ര നയത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആറാം ക്ലാസ്ക് മുതൽ വൊക്കേഷണൽ വിദ്യാഭ്യാസത്തിന് മധ്യപ്രദേശ് തുടക്ക്ംകുറിക്കും

ജയശങ്കർ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിലും വർധിക്കുന്ന ആക്രമണങ്ങളിലും ബ്രിക്സ് വിദേശമന്ത്രിമാരുടെ യോഗം ആശങ്ക പ്രകടിപ്പിച്ചു യുഎൻ ചാർട്ടർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണ് ് ഇത്തരം പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കേണ്ടതെന്ന് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ നിർദ്ദേശിച്ചു

സൊസൈറ്റി ഫോർ എയ്റോസ്പേസ് മാരിടൈം ആൻഡ് ഡിഫൻസ് സ്റ്റഡീസ് സംഘടിപ്പിച്ച വെർചൽ സിമ്പോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു് അദ്ദേഹം പ്രതിരോധ മേഖലയിലെ മേക്ക് ഇൻ ഇന്ത്യ ആഹ്വാനം വിജയിപ്പിക്കുന്നതിന് സർക്കാരും സായുധി സേനയും ആത്മാർത്ഥമായി പരിശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം നിലവിലെ പറഞ്ഞു അയൽരാജ്യങ്ങളുമായുള്ള നല്ല ബന്ധം തന്തപ്രധാനമാണ്

ടി ന്യൂ ഡയമണ്ട് എണ്ണ കപ്പലിലെ തീയണക്കാൻ കൂടുതൽ വിദഗ്ധർ രംഗത്ത് നിലവിൽ ദ ശ്രീലങ്കൻ നാവികസേന് കപ്പലുകളും ആറ് ഇന്ത്യൻ കപ്പലുകളും നാല് ടഗ് ി ബോട്ടുകളും ആണ് രക്ഷാ ശ്രമത്തിൽ ് പങ്കെടുക്കുന്നത് രണ്ട് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി ് എത്തിയി കപ്പലിലെ തീ നിയന്ത്രണവിധേയമാക്കാനായതായി ശ്രീലങ്കൻ നാവിക സേന വക്താവ് അറിയിച്ചു എന്നാൽ തീ പൂർണമായി അണക്കാൻ കഴിഞ്ഞിട്ടില്ല ശ്രീലങ്കയുടെ കിഴക്കൻ തീരത്തേക്ക് അടുത്തിനെ തുടർന്ന് വെള്ളിയാഴ്ച പ്രത്യേക ബോട്ട് ഉപയോഗിച്ച് കപ്പലിനെ ആഴക്കടലിലേക്ക് മാറ്റിയിരുന്നു

കോവിഡ് രോഗികൾ ഏറ്റവുമധികമുള്ള തിരുവനന്തപുരം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ നിർദേശ പ്രകാരം ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നടപടികൾ ശക്തിപ്പെടുത്തി

മറ്റ് സ്വകാര്യ ആശുപത്രികളാണെങ്കിൽ ഇൻഷുറൻസ് ഏജൻസിയുടെ നിയമാവലി പ്രകാരമുള്ള തുക മാത്രമേ അനുവദിക്കുകയുള്ളൂ ഇതോടൊപ്പം സുരക്ഷാ ് മാനദ്ദ്ണ്ഡ്ങൾ അനുസരിച്ച് ഹോട്ടലുകളും റസ്റ്റോറന്റുകളും എയർ കണ്ടീഷണറുകളും പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകി

എട്ട് മുതൽ പ്രന്ത്രണ്ട് വരെ ക്ളാസുകളിലെ വിദ്യാർഥികൾക്കായി ഒക്ടോബർ ഒന്നുമുതൽ ക്ളാസൂകൾ പുനരാരംഭിക്കാൻ നടപടി ് സ്വീകരിച്ചതായും ബോർഡ് അറിയിച്ചു

ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരതിന്റെ അനുകരണീയ മാതൃകയായി പുതുച്ചേരി മാറുകയാണ് വൃത്യസ്ത ഭാഷകളും ജീവിത രീതികളും കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചെറിയ പ്രദേശം സമഭാവനയോടെ നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാവുക

ഒളിമ്പിക് മത്സര ക്രമങ്ങൾ കണക്കിലെടുത്ത് വിദേശി സ്വദേശി പരിശീലകരുടെ കരാറുകൾ നീട്ടിനൽകാൻ കഴിഞ്ഞ ജൂലൈയിൽ മന്ത്രാലയം തീരുമാനിച്ചിരുന്നു

ഒരേ പരിശീലകരുടെ കീഴിൽ ദീർഘനാൾ തുടർച്ചയായി പരിശീലനം നടത്തുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രകടനം കാഴ്ചവയ്ക്കാൻ കായികതാരങ്ങളെ സഹായിക്കുമെന്ന് മന്ത്രാലയം വിലയിരുത്തി

കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ പരിശോധനകളുടെ എണ്ണം കാര്യക്ഷമമായി വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു